ചൂടേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോഴിക്കോടെത്തും

വയനാട്ടിൽ എൽ

എഫ് മ്യന്ത്രീമാരുടെ റോഡ്ഷോ കോഴിക്കോട്ടെ എൻഡി എ് സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ന് ഹൈക്കോടതി സോപ്പായിക ജാമ്യം അനുവദിച്ചു

ചെയർമാനുമായ കെ

സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം പാലായിൽ ഔദ്യോഗിക ബഹുമതികളോടെ

കിങ്സ് പോരാട്ടം

കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് വോട്ടെടുപ്പ് വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

സംസ്ഥാന പോലീസ് സേനയെ കൂടാതെ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളെയും സുരക്ഷാ ജോലികൾക്കായി വിന്യസിച്ചിട്ടുണ്ട്

ആന്ധാപ്രദേശ് സിക്കിം അരുണാച്ച്ൽപ്രദേശ് എന്നിവിടങ്ങളിൽ സംസ്ഥാന നിയമസഭയിലേയ്ക്കുള്ളൂ ഒറ്റ്ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പും പുരോഗമിക്കുകയാണ്

നിലവിലെ എം പി എൻ

പി യുടെ പി

മൊഹമ്മദ് ഫൈസലും കോൺഗ്രസ്സ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹമ്ദുള്ള സെയ്ദും രാവിലെ തന്നെ അന്ത്രോത്ത് ദ്വീപിൽ വോട്ടു രേഖപ്പെടുത്തി

രാഹുൽഗാന്ധി രാഷ്ട്രത്തിന്റെ ഭാവിക്കുവേണ്ടി ബുദ്ധിപൂർവ്വം മികച്ച സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു

എം പോളിറ്റ് ബ്യുറോ അംഗം പ്രകാശ് കാരാട്ട് പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക പാർട്ടികളെ ഒന്നിച്ചു ചേർത്തു ബി ജെ പി ക്കെതിരെ പോരാടുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പി ദേശീയ വക്താവ് ഷാനവാസ് ഹുസ്സൈൻ പാലക്കാട് എൻ

എ യുടേ തിരെഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റ് മതവിശ്യാസ്ട്രങ്ങൾക്ക് എതിരാണെന്നും ആ നിലപാടിന് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതീരിച്ചടി കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു

പാലക്കാട് മണ്ഡലം യു

എഫ് സ്ഥാനാർഥിയുടെ തെരെഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിവിധ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണാർത്ഥം നാളെ കേരളത്തിലെത്തും കൂടുതൽ നേതാക്കിൾ വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളും വിശദാംശങ്ങളുമായി ലിഖിത വിജയ്ൻ നാളെ വൈകുന്നേരം പ്ര്യാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോടെത്തും

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച കൊല്ലത്തെത്തും

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് എത്തുന്നുണ്ട് അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്കുവേണ്ടി വയനാട്ടിൽ പ്രചാരണം നടത്താൻ കോൺഗ്രസിന്റെ താര പ്രചാരകർ എത്തും നവജ്യോത് സിങ്ങ് സിദ്ധു ജ്യോതി രാധിത്യ സിന്ധ്യ സച്ചിൻ പൈലറ്റ് ഗുലാംനബി ആസാദ് എന്നിവർ അടുത്തയാഴ്ച വയനാട്ടിൽ എത്തും

എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും

ഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് ക്ട്രിട്ട് സി

ഐ ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി മൂഖ്യമന്ത്രി പിണറായി വിജയൻ സി

ഡി എഫ് ഇന്ന് നാല് മന്ത്രിമാർ പങ്കെടുക്കുന്ന റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്

റിമാന്റിലായിരുന്ന പ്രകാശ്ബാബുവിന് ഉപാധികളോടെയാണ് കോടതി ജാമ്യം നല്കിയത്

മാണി ഇൻഡ്രോ കേരള രാഷ്ട്രീയത്തിലെ അതികായനും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ കെ

മാണിക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് മൂന്നിന് പാലാ സെന്റ്തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്തുനിന്നും ആകാശവാണി പ്രതിനിധി ടോം മാത്യു

എന്നാൽ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി അറിയിച്ചു

രാജസ്ഥാനിൽ പെൺകുട്ടി പഠിച്ച സ്കൂളിലെത്തി ടി സി പരിശോധിച്ചാണ് ജനനതീയതി സ്ഥിരീകരിച്ചത്

ഇതോടെ മുഖ്യപ്രതി മുഹമ്മദ് റോഷനെതിരെ പോക്സോ പ്രകാരമുല്ള കേസ് നിലനിൽക്കും

പോകാൻ പെൺകുട്ടിയെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ മഹിളാമന്ദിരത്തിൽ ആണ് താമസിപ്പിച്ചിരിക്കുന്നത്

അഞ്ചരക്കിലോ സ്വർണമാണ് റവന്യൂ ഇന്റലിജന്ഡസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്

സ്വർണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയ എയർ ഇന്ത്യ ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുത്തു ഐ പി എൽ ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സുമായി ഏറ്റുമുട്ടും

സിന്ധു സൈന നെഹ്വാൾ സമീർവർമ്മ എച്ച്

പ്രണോയ് പി കശ്യപ് കിഡംബി ശ്രീകാന്ത് എന്നിവർ രണ്ടാർ റൌണ്ടിൽ കടന്നു

മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏഴ് പ്രമുഖ ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്